കോവിഡ് സാഹചര്യവും പ്രതിരോധ നട പടികളും പ്രധാനമന്ത്രി വിശദീകരിക്കും

ബി എസ്

എസ് എൽ സി ഹയർ സെക്കൻ്ററി ഐ

എസ് ഇ പരീ ക്ഷകളിൽ മാറ്റമില്ല സംസ്ഥാനത്ത് ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ച പുതിയ കേസു കളില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കോഴിക്കോട് ജില്ലയിൽ ഇന്ന് ഉഷ്ണതരംഗത്തിന് സാധ്യതയു ണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തോട്ടം മേഖലയുടെ സംരക്ഷണത്തിന് പ്ലാന്റേഷൻ ഡയറക്ടറേറ്റ് ഉടൻ നിലവിൽ വരും

രാജ്യത്തെ കോവിഡ് വ്യാപനവും പ്രതിരോധ നടപടികളും അദ്ദേഹം വിശദീകരിക്കും ഇന്നലെ രാജ്യത്തെ കോവിഡ് സാഹചര്യം അവലോകനം ചെയ്യാൻ ഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉന്നതൃതല യോഗം ചേർന്നിരുന്നു കൊറോണ പ്രതിരോധ നടപടികൾ കൂടുതൽ ശക്തമാക്കാനും പരിശോധനാ ചികിത്സാ സൌകര്യങ്ങൾ ഏർപ്പെടുത്തുന്നത് സംബന്ധിച്ചും യോഗം ചർച്ചചെയ്തു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 കൊറോണ് വ്യാപനം മുൻനിർത്തി സി ബി എസ്

ഈ മാസം ദ്വന് ശേഷം പരീക്ഷകൾ വീണ്ടും നടത്തും തീയതികൾ പിന്നീട് അറി യിക്കും എന്നാൽ ഐ സി എസ് ഇ പരീക്ഷകളിൽ മാറ്റ മില്ലെന്ന് ബോർഡ് സെക്രട്ടറി ന്യൂഡൽഹിയിൽ അറിയി ച്ചു

മൂന്നുപേർ മരണമടഞ്ഞു സംസ്ഥാനത്ത് ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ച പുതിയ കേസുകളില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയി ച്ചു

മെഡിക്കൽ കോളേജിൽ രണ്ടുപേരും ബീച്ച് ആശുപത്രിയിൽ ആറു പേരും ഐസൊലേഷൻ വാർഡുകളിലാണ്

ജില്ലയിലെ ആശുപത്രികളിൽ സന്ദർശക്രെ അനുവദിക്കി ല്ല രോഗിക്കൊപ്പം ഒരാൾ മാത്രം ഉണ്ടായാൽ മതിയെന്നും നിർദ്ദേശം നൽകി

കൊറോണ പ്രതിരോധത്തിന്റെ ഭാഗമായി ജില്ലയിലെ മത്സൃലേലത്തിന് കർശന നിയന്ത്രണം ഏർപ്പെ ടുത്തിയതായി ജില്ലാ കലക്ടർ അറിയിച്ചു ഇതിന്റെ ഭാഗ മായി ഒരിടത്ത് നടത്തേണ്ട ലേലം വിവിധ കേന്ദ്രങ്ങളിലായി നടത്താൻ തീരുമാനിച്ചു മലപ്പുറത്ത് കോവിഡ് ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന രണ്ടുപേരുടെ നില തൃപ്തികരമാണെന്ന് അധികൃതർ അറി യിച്ചു

രണ്ടുപേരെ ആശുപത്രിയിലേക്ക് മാറ്റി

ഇന്നലെ പുതിയതായി പത്തുപേരെ ആശുപത്രിക ളിൽ പ്രവേശിപ്പിച്ചു കോവിഡിന്റെ പശ്ചാത്തലത്തിൽ പാലി യേക്കര ടോൾപ്പാസയിലെ ടോൾപിരിവ് താൽക്കാലികമായി നിർത്തിവെയ്ക്കാൻ ജില്ലാ കലക്ടർ ഗതാഗത വകുപ്പ് സെക്രട്ടറിക്ക് കത്ത് നൽകി

ജില്ലയിൽ അഞ്ചിടത്ത് കൊറോണ കെയർ സെന്റ റുകൾ സജ്ജീകരിക്കാനും തീരുമാനിച്ചു

പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ബാർബർ ഷോപ്പുകളിലും ബ്യൂട്ടിപാർലറുകളിലും പൊതുവായി സാമ ഗ്രികൾ ഒഴിവാക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ നിർദ്ദേശിച്ചു

ആശുപത്രികളിലെ ഐസൊലേഷൻ വാർഡുകളിൽ പത്തു പേർ കഴിയുന്നു

ഇന്നലെ പത്തുപേരെ ആശുപത്രികളിൽ പ്രവേശി പ്പിച്ചു

കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പങ്കാളിത്തം ഉറപ്പു വരുത്തുന്ന്തിനായി തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രതിനിധികളുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് വിക്ടേഴ്സ് ചാനൽ വഴി ആശയവിനിമയം നടത്തും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും പരിപാടിയിൽ പങ്കെടുക്കും മുസ്ലിം പള്ളികളിൽ വെള്ളിയാഴ്ചത്തെ കൂട്ടപ്രാർത്ഥ നയും ക്രൈസ്തവ ദേവാലയങ്ങളിലെ ഞായറാഴ്ച കുർബാനകളിലും ക്ഷേത്രോത്സവങ്ങളിലും പൊങ്കാല കളിലും ആളുകൾ കൂടുതലായി പങ്കെടുക്കുന്നത് ഒഴി വാക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി പിജയൻ അഭ്യർത്ഥിച്ചു സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലെയും മത നേതാക്കളുമായി നടത്തിയ വീഡിയോ കോൺഫ റൻസിലാണ് അദ്ദേഹം ഇക്കാര്യം ആവശ്യപ്പെട്ടത് കൊടുങ്ങല്ലൂർ ഭരണിയ്ക്ക് മറ്റ് ജില്ലകളിൽനിന്ന് ആളു കൾ എത്തുന്നത് നിയന്ത്രിക്കണമെന്നും മുഖ്യമന്ത്രി ജില്ലാ കലക്ടർമാർക്ക് നിർദ്ദേശം നൽകി കൊറോണ ബാധയുടെ പശ്ചാത്തലത്തിൽ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് തൊഴിലുടമകൾ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉറപ്പാക്കണമെന്ന് സംസ്ഥാന ലേബർ കമ്മീഷണർ നിർദ്ദേശിച്ചു ജീവനക്കാർക്ക് മാസ്ക്കും ഗ്ലൌസും ഉൾപ്പെടെ സുരക്ഷാ സാമഗ്രികൾ ലഭ്യമാക്കണം ബയോമെട്രിക് പഞ്ചിംഗ് നിർത്തിവെയ്ക്ക ണമെന്നും നിർദ്ദേശമുണ്ട്

വി ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന മരുന്നുകൾ ഒരു രോഗിയിൽ നൽകിത്തുടങ്ങി ഐസൊലേഷൻ ഐ

യുവിൽ കഴിയുന്ന ബ്രിട്ടീഷ് പൌരനാണ് ആന്റിവൈറൽ മരുന്നുകൾ നൽകുന്നത് രോഗിയുടെയും സംസ്ഥാന മെഡിക്കൽ ബോർഡിന്റെയും അനുമതിയോടെയാണ് പുതിയ ചികിത്സാരീതി പരീക്ഷിക്കുന്നത് ചൈനയിലെ വുഹാനിൽ ഇത്തരം മരുന്നുകൾ രോഗികളിൽ ഉപയോഗിച്ചിരുന്നു കോഴിക്കോട് ജില്ലയിൽ ഇന്ന് പകൽ ഉഷ്ണതരംഗത്തിന് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി സാധാരണ താപനിലയേക്കാൾ നാലര ഡിഗ്രിയോ അതിലധികമോ ചൂട് വർധിക്കാൻ സാധ്യതയുണ്ട്

തോട്ടം മേഖലയുടെ സംരക്ഷണത്തിനും ശാക്തീകര ണത്തിനുമായി പ്ലാന്റേഷൻ ഡയറക്ടറേറ്റ് ഉടൻ നിലവിൽ വരുമെന്ന് മന്ത്രി ടി

പത്തനംതിട്ടുകുമ്പഴ സ്വദേശികളായ അൽഫഹദ് റാഷിദ് എന്നിവരാണ് മരിച്ചത് കുമ്പഴ സ്വദേശികളായ മറ്റ് രണ്ട് വിദ്യാർത്ഥികൾക്ക് ഗുരുതരമായി പരിക്കേറ്റു മാതൃഭൂമി മുൻ അസിസ്റ്റന്റ് എഡിറ്ററും എഴുത്തുകാരനുമായ ആർ

സംസ് കാരം രാവിലെ മാങ്കാവ് മാനാരി ശ്മശാനത്തിൽ നടത്തും